കെ ശൈലജ

നികുതി സമ്പ്രദായം പരിഷ്കരിക്കാനും ലഘൂകരിക്കാനും നടത്തുന്ന ശ്രമങ്ങളെ ഇത് ശക്തിപ്പെടുത്തുമെന്ന് പ്രധാനമന്ത്രി ട്വിറ്ററിൽ പറഞ്ഞു രാഷ്ട്ര പുരോഗതിക്ക് ശക്തി പകരുന്ന ഒട്ടേറെ കഠിനാധ്വാനികളും സത്യസന്ധരുമായ നികുതിദായകർക്ക് ഇത് ഗുണകരമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു രാര മത്സ്യബന്ധന തുറമുഖങ്ങളിൽ നിന്നും മൊത്ത വിൽപന കേന്ദ്രങ്ങളിൽ നിന്നും വിൽപ്പനക്കായി മീൻ കൊണ്ടുപോകുന്ന സ്ത്രീകൾക്ക് കോവിഡ് പരിശോധന നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പരിശോധനയിൽ നെഗറ്റീവാകുന്നവർക്ക് മാത്രമേ മീൻ വിൽപനയ്ക്ക് അനുമതി നൽകൂവെന്നും മുഖ്യമന്ത്രി അറിയിച്ചു കൂടുതൽ വിവരങ്ങളുമായി ജഷിത കുമാരി വോയ്സ് ദേശ ജില്ലാ പൊലീസ് മേധാവിമാരുടെ നേതൃത്വത്തിൽ കോവിഡ് പ്രതിരോധത്തിന് നൂതന മാർഗങ്ങൾ ആവിഷ്കരിക്കുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡ് രോഗികളുടെ സമ്പർക്കം കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് അവരുടെ ഫോൺ വിളികൾ സംബന്ധിച്ച വിശദാംശങ്ങൾ ശേഖരിക്കാൻ പൊലീസ് മേധാവി നിർദേശം നൽകിയത്

രേര സംസ്ഥാനത്ത് അംഗീകൃത സ്വകാര്യ ലാബുകളിൽ ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ കോവിഡ് പരിശോധന നടത്താൻ അനുമതി നൽകിയതായി മന്ത്രി കെ

രോഗവിവരം നേരത്തെ കണ്ടെത്തുന്നതിനും ഫലപ്രദമായ ചികിത്സ ഉടൻ ലഭ്യമാക്കുന്നതിനും ഇത് സഹായിക്കുമെന്ന് മന്ത്രി തിരുവന്തപുരത്ത് പറഞ്ഞു

ദേദ കോവിഡ് പോസിറ്റീവായി എറണാകുളം മെഡിക്കൽ കോളജിൽ ചികിത്സയിലായിരുന്ന വടക്കൻ പറവൂർ വടക്കേചുള്ളിനക്കര തങ്കപ്പൻ മരിച്ചു മരണം കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിക്കുന്നതിന് സ്രവം പരിശോധനയ്ക്ക് അയച്ചു ന്യൂമോണിയ ബാധിച്ചതിനെ തുടർന്ന് മെഡിക്കൽ കോളജിൽ പ്രവേശിപ്പിച്ച ദീർഘകാലമായി ഇദ്ദേഹം വൃക്കരോഗത്തിന് ചികിത്സയിലായിരുന്നു രുമ കോട്ടയം വൈക്കത്ത് ഞായറാഴ്ച ഹൃദയാഘാതം മൂലം മരിച്ച ഉദയനാപുരം ഇത്തിപ്പുഴ ചാക്കാട്ടിൽ സി

ഇതോടെ ആരോഗ്യ പ്രവർത്തകരും ബന്ധുക്കളും അടക്കം നിരവധി പേർ നിരീക്ഷണത്തിലായി രുമ മലപ്പുറം ജില്ലയിൽ പലയിടങ്ങളിലും മൈക്രോ ക്ലസ്റ്ററുകൾ രൂപപ്പെടുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും കോവിഡ് പകരാതിരിക്കാൻ മുൻകരുതൽ സ്വീകരിക്കണമെന്നും ജില്ലാ കലക്ടർ കെ

മത്സ്യബന്ധനത്തിന് പോകുന്ന എല്ലാ തൊഴിലാളികളും കോവിഡ് ജാഗ്രത പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് ജില്ലാ കലക്ടർ ബി അബ്ദുൽ നാസർ അറിയിച്ചു രെര കോഴിക്കോട് ജില്ലയിൽ കണ്ടെയ്ൻമെന്റ് സോണിൽ പെടാത്ത ഇടങ്ങളിൽ മാത്രമേ മത്സ്യ ബന്ധനത്തിന് അനുമതി നൽകൂവെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചു രുമ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിയുടെ ആരോഗ്യ നിലയിൽ മാറ്റമില്ല വെന്റിലേറ്റർ സഹായത്തോടെയാണ് അദ്ദേഹം കഴിയുന്നതെന്ന് ഡൽഹി ആർമി റഫറൽ ആശുപത്രി പുറത്തിറക്കിയ മെഡിക്കൽ ബുള്ളറ്റിനിൽ വ്യക്തമാക്കി തലച്ചോറിൽ രക്തം കട്ടപിടിച്ചതിനെത്തുടർന്ന് ശസ്ത്രക്രിയക്കു വിധേയനായ പ്രണബ് മുഖർജിക്ക് കോവിഡും സ്ഥിരീകരിച്ചിരുന്നു

പിന്നീട് മാധ്യമങ്ങളെ കണ്ട ശേഷം തിരിച്ചു പോകും

ദുരന്ത ഭൂമിക്ക് സമീപത്തെ പുഴ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ ഊർജ്ജിതമായി നടത്തുന്നത്

രേര മഴക്കെടുതിയിൽ തകർന്ന വീടുകൾ വാസ യോഗ്യമാക്കുന്നതിനു തദ്ദേശ സ്ഥാപനങ്ങൾ മുൻകൈ എടുക്കണമെന്ന് മന്ത്രി ഇ

രുദ പ്രകൃതിക്ഷോഭത്തിൽ കോട്ടയം ജില്ലയിലെ കാർഷിക മേഖലക്ക് കനത്ത നാശനഷ്ടം

രദര കവിയും ഗാനരചയിതാവുമായ ചുനക്കര രാമൻകുട്ടി അന്തരിച്ചു

ആകാശവാണിയിൽ ലളിത ഗാനങ്ങളിലൂടെ പ്രശസ്തനായ ചുനക്കര ആകാശവാണിക്ക് വേണ്ടി നിരവധി നാടകങ്ങളും രചിച്ചിട്ടുണ്ട്

രുമ ഓണത്തോടനുബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് പ്രഖ്യാപിച്ച സൌജന്യ പലവ്യഞ്ജന കിറ്റ് വിതരണം റേഷൻ കടകൾ വഴി ഇന്ന് ആരംഭിക്കും

ദേദ എറണാകുളം നഗരത്തിൽ നടപ്പാക്കുന്ന സിറ്റി ഗ്യാസ് വിതരണ പദ്ധതിയുടെ പുരോഗതി വലിയിരുത്തിയതായി മുഖ്യമന്ത്രി അറിയിച്ചു

രേര കൊവിഡ് പ്രതിസന്ധിഘട്ടത്തിലും വികസനക്ഷേമ രംഗത്ത് രാജ്യത്തിന് മാതൃകയായ പ്രവർത്തനങ്ങൾ നടത്താൻ ഗവൺമെന്റിന് കഴിഞ്ഞെന്ന് മന്ത്രി എ

പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കോഴിക്കോട് ജില്ലയിലെ കട്ടിപ്പാറ മൂടാടി ഗ്രാമപഞ്ചായത്തുകളിൽ പൂർത്തിയായ പദ്ധതികളുടെ ഉദ്ഘാടനം വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിക്കുകയായിരുന്നു മന്ത്രി

തലശ്ശേരി നഗരസഭയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ബഡ്സ് സ്കൂളിന്റെ കെട്ടിടോദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു മന്ത്രി രുമ സി ആപ്റ്റ് വഴി മന്ത്രി കെ ടി ജലീൽ കടത്തിയത് സ്വർണ്ണക്കിറ്റ് തന്നെയാണെന്ന ബി

പി ആരോപണം തെളിഞ്ഞു വരികയാണെന്ന് പാർട്ടി സംസ്ഥാന അദ്ധ്യക്ഷൻ കെ

ജെ പി പാലക്കാട് ജില്ലാ വെർച്ച്വൽ റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം